അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിനു മുന്നോടിയായി ഭൂമി പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ നാീട്ടുള നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ്പങ്കെടുക്കും

ഏതു സാഹചരൃവും നേരിടാൻ സർക്കാർ സജ്ജമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്നലെ അയോധ്യയിലെത്തി ഒരുക്കങ്ങൾ വിലയിരുത്തി കോവിഡ് പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രതയിലാണ് ചടങ്ങുകൾ

നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണത്തിന്റെ ഇരട്ടിയിലധികമാണ് ഇത്

സമ്പർക്ക വ്യാപനം കുറയ്ക്കാനുള്ള പൂർണ ചുമതല പോലീസിന് കൈമാറി

കേരളത്തിൽ കോവിഡ് വ്യാപനം ആശങ്ക സൃഷ്ടിച്ച തിരുവനന്തപുരം ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഉൌർജ്ജിതമാക്കി നഗരത്തിലെ ലോക്ഡൌൺ തുടരുകയാണ് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുള്ള അമേരിക്കയിൽ ഒന്നര ലക്ഷത്തിലധികം പേർ മരിച്ചു മരണസംഖ്യയിൽ രണ്ടാമത് ബ്രസീലാണ്

പൂഞ്ച് ജില്ലയിൽ കൃഷ്ണഘാട്ടി സെക്ടറിലെ നിയന്ത്രണ രേഖയിൽ ഇന്നു രാവിലെ ഏഴു മണിയോടെ ആയുധങ്ങളും കനത്ത മോർട്ടാർ ഷെല്ലുകളുമായി പാകിസ്ഥാൻ ഇന്ത്യൻ സേനയെ ആക്രമിക്കുകയായിരുന്നു ഇന്ത്യൻ സൈനൃം ശക്തമായി തിരിച്ചടിക്കുകയാണ് ഇന്ത്യൻ സൈന്യത്തിന് കനത്ത നാശനഷ്ടങ്ങളോ ആളപായമോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല

ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി ഇന്നും നാളെയും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധൃതയുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു പാലക്കാട് തൃശൂർ ഇടുക്കി എറണാകുളം കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ ഇന്നും നാളെയും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു

മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ മാറ്റിപാർപ്പിക്കാനുള്ള നടപടിയെടുക്കാൻ ജില്ലാ അധികൃതർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലുള്ള ഇടുക്കി വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് ജില്ലകളിൽ പ്രത്യേക ജാഗ്രത്യ്ക്കുപുലത്തും

ഇതു സംബന്ധിച്ച ഉത്തരവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡോണൾഡ് ട്രംപ് ഒപ്പുവച്ചു

പരിശീലനം ആരംഭിക്കാൻ കർണാടക സർക്കാരിൽ നിന്നും ഔപചാരിക അനുമതി ലഭിച്ചതിനെ തുടർന്നാണ് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്

ആരോഗ്യ മന്ത്രാലയം നിഷ്കർഷിക്കുന്ന കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ചായിരിക്കും കായികതാരങ്ങൾക്ക് പരിശീലനം

പരിശീലന്റ്ത്തിന് ആവശ്യമായ സമയം ലഭിക്കാത്തതുകൊണ്ടും വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ യാത്രയുമായി ബന്ധപ്പെട്ട് അനിശ്ചിതത്തി നിലനിൽക്കുന്നതിനാലുമാണ് ് ന്ടപടി

എസ് അനുബന്ധ ഭീകരസംഘങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോഴും സജീവമാണെന്നുള്ളതിന് തെളിവാണ് ഈ ആക്രമണം

മൈക്രോസോഫ്റ്റിന് വിൽക്കാൻ സാധ്യതയുള്ള ചൈനയുടെ വീഡിയോ ആപ്പ് നിരോധിക്കുമെന്ന് വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് ടിക്ടോക് നിരോധിക്കാൻ ട്രംപ് തീരുമാനിച്ചത് ടിക്ടോക്ക് വിട്ടുങ്ങുന്നതു സംബന്ധിച്ച് മൈക്രോസോഫ്റ്റ് സി ഇ

് ഇതു സംബന്ധിച്ചു ്ചർച്ചകൾ തുടരുമെന്നും മൈക്രോസോഫ്റ്റ് അധികൃതർ ഏറ്ഞ്ഞു

നദികളിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി